ത ലോകത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം ഒന്നേമുക്കാൽ കോടിയോട് അടുക്കുന്നു

വാർത്തകൾ വിശദമായി കഴിഞ്ഞ ആറുമാസങ്ങളിൽ കോവിഡിനെതിരെ ഗവൺമെന്റ് നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കേരളം അപകടത്തിലേക്ക് പോവാതിരിക്കാൻ സഹായിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന് മാത്രമായി ആയിരത്തോളം ആംബുലൻസുകൾ സജ്ജീകരിച്ചു

നിരവധി ആശുപത്രികളെ കോവിഡ് ആശുപത്രികളാക്കി മാറ്റാനും സൌകര്യങ്ങൾ സജ്ജമാക്കാനും കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡിനൊപ്പംതന്നെ ഇനിയും സഞ്ചരിക്കേണ്ടി വരുമെന്ന വിദഗ്ദ്ധരുടെ മുന്നറിയിപ്പ് ഉൾക്കൊണ്ട് അതിന് സജ്ജമാവുക എന്നതാണ് പ്രധാനമെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ദേദ ആരെയും നിർബന്ധിച്ച് ഹോം ഐസൊലേഷനിൽ വിടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹോം കെയർ ഐസൊലേഷൻ നടപ്പാക്കുന്നത് രോഗത്തെ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ നേടിയ അവബോധം ഗുണം ചെയ്യും എന്നതുകൊണ്ടാണ് അവർക്ക് ആദ്യം ഈ സംവിധാനം നടപ്പാക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ജൂലൈ രണ്ടിന് തന്നെ ഹോം കെയർ ഐസൊലേഷൻ നടപ്പാക്കാമെന്ന് അറിയിച്ചിരുന്നു മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കിയിട്ടുണ്ട് ആരോഗ്യ നിലയിൽ എന്തെങ്കും ബുദ്ധിമുട്ട് ഉണ്ടായാൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുമ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിജിലൻസ് ഉൾപ്പെടെ പൊലീസിന്റെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പി ഡി ഐ ജി ഐ ജി

ഡി ജി പി തുടങ്ങിയ ഉദ്യോഗസ്ഥർ നേരിട്ടോ അല്ലാതെയോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും

ഓഗസ്റ്റ് അഞ്ച് മുതൽ നിയന്ത്രിത മത്സ്യബന്ധനം അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ബോട്ടുകൾക്കും നമ്പർ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെടാം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മീൻ പിടിക്കുന്നവർ അതാത് സോണുകളിൽ തന്നെ അവ വിറ്റഴിക്കണം മത്സ്യലേലം പൂർണ്ണമായി ഒഴിവാക്കി പ്രാദേശിക ജനകീയ കമ്മിറ്റികൾ മത്സ്യത്തിന്റെ വില നിശ്ചയിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പട്ടണക്കാട് സ്വദേശി ചക്രപാണി എഴുപുന്ന സ്വദേശി ശാരദ എന്നിവരാണ് മരിച്ചത്

രുമ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ സ്വദേശി ഏലിയാമ്മ കോവിഡ് മരണമടഞ്ഞു

ഇവരിൽ രണ്ടുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ

രുമ അടിയന്തര സാഹചര്യങ്ങളിൽ കോവിഡ് പരിശോധനയും ചികിത്സയും ഉറപ്പാക്കാൻ ദേശീയ ആരോഗ്യമിഷൻ നടപ്പാക്കുന്ന എമർജൻസി മൊബൈൽ മെഡിക്കൽ ടീം എറണാകുളം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു

ഓരോ വാഹനത്തിലും ഒരു ഡോക്ടറും നഴ്സും ഉണ്ടായിരിക്കും

കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ മാർക്കറ്റുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കേണ്ടതില്ലെന്ന് നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു രദേ കോഴിക്കോട് കോർപ്പറേഷനിൽ വാർഡുകൾ ഒന്നിച്ച് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്നതിന് പകരം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കുന്നതിന് തീരുമാനമായി

തൂണേരി വടകര നാദാപുരം ഒളവണ്ണ എന്നിവയാണ് ലാർജ് ക്ലസ്റ്ററുകൾ രുദ കൊല്ലം ജില്ലാ കലക്ടർ വി

കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടയാൾ കലക്ടറുടെ ഓഫീസിൽ എത്തിയതിനെത്തുടർന്നാണ് അദ്ദേഹം സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചത് രുമ കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭ ജൂനിയർ സൂപ്രണ്ടിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ നഗരസഭ ഓഫീസും നഗരവും അടച്ചിട്ടു

നിലവിൽ അമ്പത്തി എട്ടര ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ട്

പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ മകൻ ഇസ്മായിലിനെ ദൈവ കൽപന മാനിച്ച് ബലി കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഓർമ പുതുക്കലാണ് ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ

കൊവിഡ് ജാഗ്രതാ നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ കുടുംബ സൌഹൃദങ്ങളും കൂടിച്ചേരലുകളും നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് മതനേതാക്കൾ ആഹ്വാനം ചെയ്തു ജാഗ്രത പാലിക്കണമെന്നും രോഗവ്യാപന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധയും കരുതലും വേണമെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു രുഭ ബക്രീദിന് പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ആളുകളുടെ എണ്ണം പരമാവധി കുറച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ ലോകത്തൊരിടത്തും പതിവ് ആഘോഷങ്ങൾക്ക് സാഹചര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് വ്യാപനം മുൻനിർത്തി ചില പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം വേണ്ടെന്നുവച്ച കമ്മിറ്റികൾ ഉണ്ടെന്നും അവരുടെ തീരുമാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബക്രീദ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ മത്സ്യ ബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്